ശ്രീരാമകൃഷ്ണൻ

പിതൃമോക്ഷത്തിന് ലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തും ങ്ങ ൽ ശ് ൽ ശ് ജ ൾ ൾ ൾ ൽ ഇന്ത്യാ പാക് സംഘർഷ സാഹചര്യം വിലയിരുത്താൻ പ്രധാന മന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം ഡൽഹിയിൽ ചേർന്നു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ്സിങ് അരുൺജയ്റ്റ്ലി സുഷമാ സ്വരാജ് നിർമല സീതാ രാമൻ തുടങ്ങിയവരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ തുടങ്ങിയ വരും പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇന്ന് രണ്ടു ദിവസത്തെ സന്ദർശനം ആരംഭിക്കും അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതി യുടെ ഒന്നാംഘട്ടം ഉദ്ഘാടനം ചെയ്യുന്ന നരേന്ദ്രമോദി രണ്ടാംഘട്ട ത്തിന് തറക്കല്പിടുകയും ചെയ്യും ബാന്ദ്ര ജാംനഗർ ഹംസഫർ എക്സ്പ്രസും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും സംസ്ഥാനത്ത് നിർമാണം പൂർത്തിയാക്കിയ ഏതാനും ആശുപത്രികളും പ്രധാന മന്ത്രി നാടിന് സമർപ്പിക്കും രാഷ്ട്ര ഭാവി സുരക്ഷിതമാകണമെങ്കിൽ വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകണമെന്ന് കേന്ദ്ര സഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനം നിർദേശിച്ചു പത്തനംതിട്ട ചെന്നീർക്കരയിൽ കേന്ദ്രീയ വിദ്യാലയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുരോഗതി സ്വപ്നം കാണുന്ന പുതു തലമുറയാണ് വളർന്ന് വരേണ്ടതെന്നും വൃക്തിപരമായി അടിസ്ഥാന വിശ്വാസം വീട്ടിൽ നിന്നാണ് ഉണ്ടാകേണ്ടതെന്നും കണ്ണന്താനം അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സാന്ത്വന ചികിത്സാ രംഗത്തെ സേവനങ്ങളിൽ കൂടുതലായി പങ്കാളികളാവണമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ആവശൃപ്പെട്ടു ഈ രംഗത്ത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായ ശ്രദ്ധ ചെലുത്തുന്നി ല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അഭിപ്രായപ്പെട്ടു സുരക്ഷ പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സംഘടിപ്പിച്ച പാലിയേ റ്റീവ് കെയർ വളണ്ടിയർ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുന്നണികൾ സ്ഥാനാർഥി നിർണയത്തിൽ അന്തിമഘട്ട ചർച്ചകൾ ആരംഭിച്ചു നാളെ മുതൽ വ്യാഴാഴ്ച വരെ സിപിഐഎം സംസ്ഥാന സെക്രട്ട റിയേറ്റും വെള്ളിയാഴ്ച എൽഡിഎഫ് യോഗവും തിരുവനന്തപു രത്ത് ചേർന്ന് സീറ്റ് വിഭജനം സ്ഥാനാർഥി നിർണയം എന്നിവ സംബന്ധിച്ച് തീരുമാനത്തിലെത്തും സിപിഐ സംസ്ഥാന കൌൺസിൽ ഇന്നും ബുധൻ വ്യാഴം ദിവ സങ്ങളിൽ കേന്ദ്ര എക്സിക്യൂട്ടീവും ചേർന്ന് സ്ഥാനാർഥി കാര്യ ത്തിൽ അന്തിമ തീരുമാനമെടുക്കും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് തിരുവനന്ത പുരത്ത് ചേരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ഇന്നും സാധ്യതാ പട്ടികകൾ നൽകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ കൊച്ചിയിൽ നട ത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിന്നതോടെയാണ് രണ്ടാംവട്ട ഉഭയകക്ഷി ചർച്ചയും വിജയത്തിലെത്താതെ പോയത് നാളെ ആലുവായിൽ വീണ്ടും ഉഭയകക്ഷി യോഗം ചേരും ബിഡിജെഎസ് സംസ്ഥാന കൌൺസിൽ യോഗം ഇന്ന് ചേർത്തല കണിച്ചുകുളങ്ങരയിൽ നടക്കും

പാർട്ടി പ്രസി ഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുടെ അധ്യക്ഷതയിലാണ് യോഗം കാസർകോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടു ത്തിയ പ്രതികളെ രക്ഷിക്കാനും അന്വേഷണം അട്ടിമറിക്കാനും ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് വ്യാഴാഴ്ച പ്രതി ഷേധക്കൂട്ടായ്മ സംഗമം നടത്തുമെന്ന് കെ

സി സി വർക്കിങ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു അന്വേഷണം സിബിഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരിക്കും കൂട്ടായ്മ അന്വേഷണം വഴിതെറ്റിച്ച് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അബ്ദുൽ റഫീഖിനെ മാറ്റിയതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ കോഴിക്കോട് സന്ദർശനത്തോട് ബന്ധപ്പെട്ട് പാർട്ടി പരിപാടികൾ തീരുമാനിക്കാൻ കോഴിക്കോട് കണ്ണൂർ കാസർകോട് മലപ്പുറം പാലക്കാട് വയ നാട് ജില്ലകളിലെ നേതാക്കളുടെ സംയുക്ത യോഗം നാളെ കോഴി ക്കോട് ചേരും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ മുഖ്യ മന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും

ജമ്മുകശ്മീരിലെ കുപ്വാഡയിൽ സുരക്ഷാസേനയും ഭീകരപ്ര വർത്തകരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സി ആർ

എഫ് ഓഫീസർ ഉൾപ്പെടെ അഞ്ച് സുരക്ഷാ സൈനികർ വീരമൃത്യുവരി ച്ചു

വീടുകളിൽ ഒളിച്ചിരുന്ന ഭീകരരാണ് ആക്രമണം നടത്തിയത് കരിപ്പൂർ നെടുമ്പാശേരി വിമാനത്താവളങ്ങളിൽ നിന്നായി ഇന്നലെ രണ്ട് കോടിയോളം രൂപയുടെ സ്വർണം പിടികൂടി

ഒരു ക്ടോടിയിൽപരം രൂപ യുടെ സ്വർണം മിശ്രിതമായും ബിസ്കറ്റുകളായും ഷൂസിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച കാസർകോട് സ്വദേശി മുഹമ്മദ് മൊയ്തീൻ സവാദിനെ ഡി

ഇയാൾ ദുബായിൽ നിന്ന് സ്പൈസ് ജെറ്റ് പ്രിമാനത്തിലാണ് കരിപ്പൂരെത്തി യത്

പിതൃമോക്ഷ പ്രാപ്തിക്കായി ജനലക്ഷങ്ങൾ ഇന്ന് ശിവക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണത്തി നെത്തും ആലുവ മണപ്പുറം അടക്കം പ്രമുഖ സ്നാനഘട്ടങ്ങളി ലെല്ലാം വിശ്വാസികൾ എത്തിക്കഴിഞ്ഞു ആലുവ നഗരസഭയും തിരു വിതാംകൂർ ദേവസ്വം ബോർഡും ഭക്തർക്കായി വിപുലമായ ക്രമീ കരണങ്ങൾ ഏർപ്പെടുത്തി പെരിയാർ തീരത്ത് മുന്നൂറോളം ബലി ത്തറകൾ ഒരുക്കിയിട്ടുണ്ട് മണപ്പുറത്ത് എത്തുന്നവർക്കും സാധന സാമഗ്രികൾക്കുമായി ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷൂ റൻസ് പരിരക്ഷയും നഗരസഭ ഏർപ്പെടുത്തി

ട കഴിഞ്ഞ വർഷത്തെപ്പോലെ ഈവർഷവും ഹരിത നടപടി ക്രമങ്ങൾ പാലിച്ചായിരിക്കും ശിവരാത്രി മണപ്പുറത്തിന് പുറമെ അദ്വൈതാ ശ്രമത്തിലും ബലിതർപ്പണ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്

ടി

തിരുവല്ലം തിരു ന്നാവായ തിരുനെല്ലി ശംഖുമുഖം ക്ഷേത്രങ്ങളിലും സ്നാനഘട്ട ങ്ങളിലും പതിനായിരങ്ങൾക്ക് ബലിതർപ്പണ സൌകര്യം ഒരുക്കിയി ട്ടുണ്ട് ശിവരാത്രിയോടനു ബന്ധിച്ച് കണ്ണൂരില്ലെ പ്രധാന ശിവ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ വൻ തിരക്കാണ് തളിപ്പറമ്പ് രാജ രാജേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ദർശനത്തിനായി വലിയ നിര രൂപപ്പെട്ടുകഴിഞ്ഞു കാസർകോട് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ രാവിലെ ബലിതർപ്പണത്തിനായി നൂറുകണക്കിനാളുകൾ എത്തി കോഴിക്കോട് തുറയൂർ ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര ശുദ്ധജല വിത രണ പദ്ധതിയുടെ നിർമാണം മന്ത്രി കെ

കൂടിവെള്ള മേഖലയിൽ ഇതുവരെ അമ്പതിനായിരം കോടി രൂപയുടെ പ്രവർത്തനം പൂർത്തീകരിച്ചതായും ഇരുപതിനാ യിരം കോടി രൂപയുടെ പ്രവൃത്തികൂടി അടിയന്തിരമായി നടപ്പാ ക്കുമെന്നും മന്ത്രി അറിയിച്ചു നരിപ്പറ്റയിലും സമഗ്ര ശുദ്ധജല പദ്ധതി മന്ത്രി ഉദ്ഘാടനം ചെയ്തു കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ ഇടുക്കി മരിയാപുരം ആശുപത്രിയുടെ പുതിയ ഒ പി ബ്ലോക്കിന് മന്ത്രി എം എം മണി തറക്കല്ലിട്ടു

തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു

ബാലുശ്ശേരി പനായി ആയുർവേദ ആശുപ ത്രിയിലെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്തി സ്ത്രീസമത്വം യാഥാർഥ്യമാക്കിയാലേ നവോത്ഥാന ദൌത്യം പൂർണമാകൂവെന്ന് മന്ത്രി ട്ടി

സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ വനിതാദിനത്തിന്റെ മുന്നോടി യായി കോഴിക്കോട് സംഘടിപ്പിച്ച വനിതാചലച്ചിത്രോത്സവം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി അധ്യാപക കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസത്തെ വിദ്യാർഥി കേന്ദ്രീ കൃതമാക്കിയതാണ് ഗവൺമെന്റ് നടപ്പാക്കിയ മാറ്റമെന്ന് മന്ത്രി പ്രൊഫ

പാലക്കാട് പിട്ടുക്കാരികുളമ്പ് എം എം യു പി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സരസകവി മൂലൂർ എസ്

എൻ ഡി എ ഭരണത്തിൽ രാജ്യത്ത് തൊഴിലില്ലാത്തവരുടെ എണ്ണം വർധിച്ചെന്നും നോട്ട് അസാധുവാക്കിയതിനെ തുടർന്ന് ഒരു കോടിയിലേറെ പേർക്ക് തൊഴിൽ നഷ്ടമായെന്നും ഡി

എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം കാസർക്കോട്ട് കുറ്റപ്പെടുത്തി

ഐ കാസർക്കോട്ട് ബ്ലോക്ക് കമ്മറ്റി സംഘടിപ്പിച്ച അഹമ്മദ്അഫ്സൽ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ